നടപ്പ് സാമ്പത്തിക വർഷത്തെ ധന്കാരൃ ബിൽ ലോക്സഭ പാസാക്കി തിരുവനന്തപുരം യൂണിവേഴ്സിറ്റി കോളജിലെ സംഭവങ്ങൾ അസ്വസ്ഥത സൃഷ്ടിക്കുന്നതാണെന്ന് ഗവർണർ ജസ്റ്റിസ് പി

പ്രശ്നത്തിൽ ഇടപെടണമെന്നാവശ്യപ്പെട്ട് യുഡിഎഫ് നേതാക്കൾ ഇന്ന് ഗവർണറെ കാണും മുസ്തീം യൂത്ത് ലീഗ് കലക്ട്രേറ്റുകളിലേക്ക് മാർച്ച് നടത്തും

കൊല്ലം കടക്കലിൽ നിന്ന് അരക്കോടി രൂപയുടെ പാൻമസാല പിടികൂടി ൾ ൽ ൾ കർണാടകയിൽ ഇന്നുച്ചയ്ക്ക് ഒന്നരക്ക് മുമ്പ് ഭൂരിപക്ഷം തെളിയിക്കണമെന്ന് ഗവർണർ വാജുഭായ്വാല മുഖൃമന്ത്രി എച്ച്

കുമാരസ്വാമിക്ക് നിർദേശം നൽകി രാത്രി വൈകി ഗവർണർ മുഖ്യ മന്ത്രിക്ക് രേഖാമൂലമാണ് ഇന്ന് ഭൂരിപക്ഷം തെളിയിക്കാൻ നിർദേശം നൽകിയത് ഇന്നലെ നിയമസഭയിൽ വിശ്വാസപ്രമേയം അവതരിപ്പിച്ചെങ്കിലും സ്പീക്കർ കെ

രമേഷ്കുമാർ സഭാ നടപടികൾ ഇന്നലത്തേക്ക് നിർത്തിവെച്ചു ഇന്നലെത്തന്നെ വിശ്വാസ വോട്ടെടുപ്പ് നടത്തണമെന്ന് ഗവർണർ സ്പീക്കർക്ക് നിർദേശം നൽകിയിരുന്നു ഇത് തള്ളിയാണ് ഒരു ദിവസത്തേക്ക് സഭ പിരിയാൻ സ്പീക്കർ തീരുമാനിച്ചത് സ്പീക്കറുടെ നടപടിയിൽ പ്രതിഷേധിച്ച് ബിജെപി അംഗങ്ങൾ വിധാൻസഭയിൽ പ്രതിഷേധം തുടരുകയാണ് രാത്രി സഭക്കുള്ളിൽ ബിജെപി എംഎൽഎമാർ ധർണ നടത്തി അതിനിടെ വിമതർക്ക് വിപ്പ് നൽകരുതെന്ന ഉത്തരവ് ചോദ്യം ചെയ്ത് വീണ്ടും സുപ്രീം കോടതിയെ സ്ഥമീപിക്കാൻ കോൺഗ്രസ് തീരുമാനിച്ചിട്ടുണ്ട് ഇന്നത്തെ വിശ്വാസ വോട്ടെടുപ്പ് നീട്ടുന്നതിനെതിരെ ബിജെപിയും കോടതിയെ സമീപിച്ചേക്കും നടപ്പ് സാമ്പത്തിക വർഷത്തെ ധനകാര്യ ബിൽ ലോക്സഭ പാസാ ക്കി നികുതി ഘടനയിൽ വരുത്തിയ ഭേദഗതി മെയ്ക്ക് ഇൻ ഇന്ത്യ സ്റ്റാർട്ട് അപ് പദ്ധതികൾ എന്നിവ പരിപോഷിപ്പിക്കുന്നതാണ് ബിൽ വൃവസ്ഥകളെന്ന് മന്ത്രി നിർമ്മലാ സീതാരാമൻ പറഞ്ഞു റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ആക്ടിലെ ഭേദഗതി ബാങ്കിംഗ് ഇതര സാമ്പത്തിക കമ്പനികളുടെമേൽ കൂടുതൽ അധികാരം വിഭാവനം ചെയ്യും പെട്രോളിനും ഡീസലിനും സെസ് ഏർപ്പെടുത്തിയ നടപടിയും ഒരു കോടിയിലധികം രൂപ ബാങ്കിൽ നിന്ന് പിൻവലിക്കുമ്പോൾ ഏർപ്പെടുത്തിയ രണ്ട് ശതമാനം ടിഡിഎസും പിൻവലിക്കണമെന്ന പ്രതിപക്ഷ ആവശൃം ധനമന്ത്രി അംഗീകരിച്ചില്ല വിവരാവകാശ നിയമത്തിൽ ഭേദഗതി കൊണ്ടുവരുന്ന ബിൽ ഗവൺമെന്റ് ഇന്ന് ലോക്സഭയിൽ അവതരിപ്പിച്ചേക്കും വിവരാവ കാശ കമ്മീഷണർമാരുടെ ശമ്പളം അലവൻസുകൾ എന്നിവയിലെ മാറ്റമാണ് ഭേദഗതി പ്രധാനമായും ലക്ഷ്യമിടുന്നത്

അത്രസമയം ഗവൺമെന്റ് നീക്കം കമ്മീഷന്റെ സ്വതന്ത്രവും നിഷ്പക്ഷവുമായ പ്രവർത്തനങ്ങളെ ബാധിക്കുമെന്ന അക്ഷേപമു യർന്നിട്ടുണ്ട് ഇന്ത്യൻ നാവിക സേനാ മുൻ ഉദ്യോഗസ്ഥൻ കുൽഭൂഷൺ ജാദവ് കേസിൽ അന്താരാഷ്ട്ര കോടതി വിധി നടപ്പാക്കണമെന്ന് ഇന്ത്യ പാകി സ്ഥാനോട് ആവശ്യപ്പെട്ടു ജാദവിന്റെ സുരക്ഷ ഉറപ്പുവരുത്താനും അദ്ദേഹത്തെ ഇന്ത്യയിൽ തിരിച്ചെത്തിക്കാനും നടപടികൾ ശക്തമായി തുടരുമെന്ന് കേന്ദ്രമന്ത്രി എസ് ജയശങ്കർ പാർലമെന്റിന്റെ ഇരുസഭ കളിലും വൃക്തമാക്കി അതേസമയം അന്താരാഷ്ട്ര കോടതി വിധി സ്ട്ബന്ധിച്ച് നിയമ പരമായ നടപടികൾ സ്വീകരിക്കുമെന്ന് പാക്കിസ്ഥാൻ പ്രധാനമന്ത്രി ഇമ്രാൻഖാൻ ടിറ്ററിൽ കുറിച്ചു ജാദവിനെ കുറ്റവിമുക്തനാക്കാനല്ല കോടതിയുത്തരവെന്നും ഇമ്രാൻഖാൻ അവകാശപ്പെട്ടു തിരുവനന്തപുരം യൂണിവേഴ്സിറ്റി കോളജിലെ സംഭവങ്ങൾ അസ്വ സ്ഥത സൃഷ്ടിക്കുന്നതാണെന്ന് ഗവർണർ ജസ്റ്റിസ് പി സദാശിവം അഭി പ്രായപ്പെട്ടു പ്രശ്നങ്ങൾക്ക് വൈകാതെ പരിഹാരമുണ്ടാകുമെന്നാണ് പ്രതീക്ഷയെന്നും അദ്ദേഹം കാഞ്ഞിരപ്പള്ളിയിൽ പറഞ്ഞു കോളജു കളിലെ സംഘർഷങ്ങളെ കുറിച്ചും ലൈംഗിക അതിക്രമങ്ങളെ കുറിച്ചും എല്ലാ മാസവും റിപ്പോർട്ട് നൽകാൻ വൈസ് ചാൻസലർമാ രോട് ആവശ്യപ്പെടുമെന്നും അദ്ദേഹം അറിയിച്ചു സ്വകാര്യ എഞ്ചിനിയറിങ്ങ് കോളജിന്റെ ചടങ്ങിൽ പങ്കെടുക്കുക യായിരുന്നു ഗവർണർ പിഎസ്സി നിയമനങ്ങളിലും പരീക്ഷകളിലും ക്രമക്കേടുകൾ ഉണ്ടെന്ന് ആരോപണമുയർന്ന സാഹചര്യത്തിൽ പ്രശ്നത്തിൽ ഇട പെടണമെന്നാവശൃപ്പെട്ട് യുഡിഎഫ് നേതാക്കൾ ഇന്ന് ഗവർണറെ കാണും ക്രമക്കേടുകളിൽ സിബിഐ അന്വേഷണം ആവശ്യപ്പെട്ട് പ്രക്ഷോഭം തുടങ്ങാനും ഇന്നലെ തിരുവനന്തപുരത്ത് ചേർന്ന യുഡി എഫ് കക്ഷി നേതാക്കളുടെ യോഗം തീരുമാനിച്ചു

കെഎസ്യു ഇന്ന് സംസ്ഥാന വ്യാപകമായി കോളജുകളിൽ പഠിപ്പ് ദ്ദ മുടക്കിന് ആഹാനം നൽകിയിട്ടുണ്ട് മുസ്തീം യൂത്ത് ലീഗ് ഇന്ന് കലക്ട്രേറ്റുകളിലേക്ക് മാർച്ച് നടത്തു മെന്ന് സംസ്ഥാന ഭാരവാഹികൾ അറിയിച്ചു യൂണിവേഴ്സിറ്റി കോള ജിലെ എസ്എഫ്ഐ നേതാക്കളിൽ നിന്ന് പരീക്ഷാ ഉത്തരക്കടലാസ് കണ്ടെടുക്കുകയും പിഎസ്സിയുടെ പൊലീസ് റാങ്ക് ലിസ്റ്റിനെ കുറിച്ച് പരാതി ഉയരുകയും ചെയ്ത സാഹചരൃത്തിലാണ് സമഗ്രാന്വേഷണം ആവശ്യപ്പെട്ട് മാർച്ച് കോഴിക്കോട്ട് ഡോ

മുനീറും മലപ്പുറത്ത് പി

കുഞ്ഞാ ലിക്കുട്ടിയും കാസർകോട്ട് പി

ഫിറോസും മാർച്ച് ഉദ്ഘാടനം ചെയ്യും സിപിഐഎം സംസ്ഥാന സെക്രട്ടേറിയറ്റ് ഇന്ന് തിരുവനന്തപു രത്ത് ചേരും യൂണിവേഴ്സ്റ്റി കോളജിലെ അക്രമസംഭവങ്ങളെ തുടർന്നുണ്ടായ സ്ഥിതിഗതികൾ യോഗം ചർച്ച ചെയ്തേക്കും പിഎ സ്സിയുടെ സുതാര്യതയെക്കുറിച്ചുയർന്ന ആരോപണങ്ങളും ചർച്ചക്കു വരുമെന്നാണ് സൂചന കോഴിക്കോട് ബേപ്പൂർ തുറമുഖത്ത് നിന്ന് മലാപ്പറമ്പിലേക്ക് കണ ക്റ്റിവിറ്റി റോഡിന് വിശദമായ പ്രൊജക്റ്റ് റിപ്പോർട്ട് തയാറാക്കുമെന്ന് കേന്ദ്രമന്ത്രി നിതിൻ ഗഡ്ഗരി ലോക്സഭയെ അറിയിച്ചു ഭാരത്മാലാ പരിയോജനാ പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് പതിനെട്ടര കിലോമീ റ്ററോളം നീളത്തിൽ നാലുവരി പാത നിർമ്മിക്കുന്നത് ഇതിന്റെ പ്രാരംഭ പ്രവർത്തനങ്ങൾക്ക് നേരത്തെ അനുമതി നൽകിയിരുന്നതായും ഗഡ്ഗരി പറഞ്ഞു ചിലവിന്റെ നാലിലൊന്ന് സംസ്ഥാന ഗവൺമെന്റ് നൽകാൻ ധാരണയായിട്ടുണ്ട് മാധ്യമ ധർമ്മം കനത്ത വെല്ലുവിളി നേരിടുകയാണെന്ന് ഗവർണർ ജസ്റ്റിസ് പി സദാശിവം അഭിപ്രായപ്പെട്ടു പരസ്യ സ്വഭാവത്തോടുകൂ ടിയ വാർത്തകളും പണം നൽകി പ്രസിദ്ധീകരിക്കുന്ന വാർത്തകളും ശരിയായ വസ്തുതകളെ മൂടി വെക്കുകയാണ് വാർത്തകൾ വിൽപ്പന ചരക്കാകുമ്പോൾ മാധ്യമ ധർമ്മം സമ്മർദ്ദങ്ങളുടെ പിടിയിലാവുക യാണെന്നും ഗവർണർ കോട്ടയത്ത് പറഞ്ഞു സാമൂഹൃ മാധൃമങ്ങളുടെ നിയന്ത്രണമില്ലാത്ത ഉപയോഗം ഉത്ത രവാദിത്ത മാധൃമ പ്രവർത്തനം അനിവാരൃമാക്കിയിരിക്കുന്നു

കോട്ടയം പ്രസ്ക്ലബ്ബിന്റെ പുതിയ നില ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു ജസ്റ്റിസ് സദാശിവം സംസ്ഥാനത്ത് വിവിധ ജില്ലകളിൽ ഇന്നും വരും ദിവസങ്ങളിലും ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കാലാവസ്ഥാ കേന്ദ്രങ്ങൾ മുന്ന റിയിപ്പ് നൽകി ഇന്ന് പത്തനംതിട്ട കോട്ടയം ഇടുക്കി ജില്ലകളിൽ കനത്ത മഴയ്ക്ക് സാധ്യത മുൻനിർത്തി കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം റെഡ് അലർട്ട് പ്രഖ്യാപിച്ചു

നാളെ ഇടുക്കി ജില്ലയിലും മറ്റ ന്നാൾ കണ്ണൂർ ജില്ലയിലും റെഡ് അലർട്ട് നൽകിയിട്ടുണ്ട് ആലപ്പുഴ എറണാകുളം ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് അലർട്ടും നാളെ എറണാകുളം ജില്ലയിലും മറ്റന്നാൾ ഇടുക്കി എറണാകുളം ജില്ലകളിൽ ഓറഞ്ച് അലർട്ടും പ്രഖ്യാപിച്ചിട്ടുണ്ട് തിരുവനന്തപുരം കൊല്ലം തൃശൂർ പാലക്കാട് മലപ്പുറം കോഴി ക്കോട് വയനാട് കണ്ണൂർ ജില്ലകളിൽ ഇന്ന് യെല്ലോ അലർട്ടും നൽകി യിട്ടുണ്ട് മുഖ്യമന്ത്രി പിണറായി വിജയന് ചരിത്രം നൽകാൻ പോകുന്നത് ചവറ്റുകുട്ടയാണെന്ന് കെപിസിസി പ്രസിഡന്റ് മുല്ലപ്പള്ളി രാമചന്ദ്രൻ പറഞ്ഞു സ്വേച്ഛാധിപതികളായ പല നേതാക്കൾക്കുമുണ്ടായ ഗതി കേട് പിണറായി വിജയൻ ഓർമ്മിക്കണമെന്നും വയനാട് ജില്ലാ കോൺഗ്രസ് കമ്മറ്റിയുടെ ക്യാമ്പ് ഉദ്ഘാടനം ചെയ്യവെ അദ്ദേഹം അഭിപ്രായപ്പെട്ടു

യോഗം മറ്റന്നാൾ മുംബൈയിൽ നടക്കുമെന്നാണ് റിപ്പോർട്ട് അടുത്ത മാസം മൂന്നിനാണ് ഇന്ത്യൻ ടീമിന്റെ പര്യടനം ആരംഭിക്കുന്നത് സിറോ മലബാർ സഭ ആർച്ച് ബിഷപ്പ് കർദ്ദിനാൾ മാർ ജോർജ്ജ് ആലഞ്ചേരിയെ സ്ഥാനത്ത് നിന്ന് നീക്കണമെന്നാവശ്യപ്പെട്ട് ഒരു വിഭാഗം വൈദികരുടെ നേതൃത്വത്തിൽ എറണാകുളം ബിഷപ്പ് ഹൌസിനു മുന്നിൽ അനിശ്ചിതകാല ഉപവാസ സമരം തുടങ്ങി എറ ണാകുളം അങ്കമാലി അതിരൂപതയുടെ ഭരണച്ചുമതല തിരികെ നൽകി യതിലും സഹായമെത്രാന്മാരെ പുറത്താക്കിയതിലും പ്രതിഷേധിച്ചാണ് ഫാദർ ജോസഫ് പാറേക്കാട്ടിലിന്റെ നേതൃത്വത്തിൽ സമരം ആരംഭി ച്ചത്

കൊല്ലം ഓടനാവട്ടത്ത് എൽപിജി സിലിണ്ടർ പൊട്ടിത്തെറിച്ച് വീട് തകർന്ന സംഭവത്തിൽ നഷ്ട്ടപരിഹാര നടപടികൾ വേഗത്തിലാക്കാൻ ജില്ലാ കലക്ടർ ബി അബ്ദുൾനാസർ ഗ്യാസ് കമ്പനിക്ക് നിർദേശം നൽകി ജൂലൈ പത്തിന് അപകടമുണ്ടായിട്ടും ഇതുവരെ ഇൻഷു റൻസ് അധികൃതർ വീട്ടിലെത്തുകയോ ്രുടർ നടപടികൾ എടുക്കു കയോ ചെയ്തിട്ടില്ലെന്ന് വീട്ടുടമ പാച്കവാതക അദാലത്തിൽ പരാതി നൽകിയിരുന്നു

ക്ഷീര കർഷകർക്ക് മാർഗ നിർദേശം നൽകാൻ ക്ഷീര സംര ക്ഷണ വകുപ്പ് ഉദ്യോഗസ്ഥർക്ക് പരിശീലനം നൽകുന്ന പരിപാടിക്ക് ഇന്ന് പാലക്കാട്ട് തുടക്കമാകും

മന്ത്രി എ

ശശീന്ദ്രൻ ഇന്ന് കോഴിക്കോട് ജില്ലയിൽ വിവിധ പരിപാടികളിൽ പങ്കെടുക്കും ഉച്ചക്ക് കാരപ്പറമ്പ് ഗവൺമെന്റ് ഹയർ സെക്കന്ററി സ്കൂളിൽ സൈക്കിൾ കാർണിവൽ ഉദ്ഘാടനവും ഗ്രീൻ എക്സ്പ്രസ് വാഹനത്തിന്റെ ഫ്ളാഗ്ഓഫും മന്ത്രി നിർവ്വഹിക്കും പ്രളയാനന്തര പുനർനിർമ്മാണവുമായി ബന്ധപ്പെട്ട് ഗുണഭോ ക്താക്കളുടെ സംഗമം ജനകീയം ഈ അതിജീവനം പരിപാടി നാളെ ഇടുക്കി കോട്ടയം ജില്ലകളിൽ സംഘടിപ്പിക്കും കോട്ടയത്ത് മന്ത്രി പി തിലോത്തമനും ഇടുക്കിയിൽ മന്ത്രി എം

മണിയും പരിപാടി ഉദ്ഘാടനം ചെയ്യും

വിശുദ്ധ അൽഫോൻസാമയുടെ ഭരണങ്ങാനം തീർത്ഥാടന പള്ളി യിൽ തിരുനാൾ ഇന്ന് തുടങ്ങും പത്ത് ദിവസത്തെ തിരുനാളിന് രാവിലെ പത്തരയോടെ ബിഷപ് മാർ ജോസഫ് കല്ലറങ്ങാട് കൊടി യേറ്റും

ഈ വർഷത്തെ കരിപ്പൂർ ഹജ്ജ് ക്യാമ്പ് സമാപന സംഗമം ഇന്ന് നടക്കും വൈകീട്ട് ഹജ്ജ് ഹൌസിൽ മന്ത്രി ഡോ

ജലീൽ സംഗമം ഉദ്ഘാടനം ചെയ്യുമെന്ന് സംസ്ഥാന ഹജ്ജ് കമ്മറ്റി ചെയർമാൻ സി മുഹമ്മദ് ഫൈസി അറിയിച്ചു ബിഡിജെഎസ് വയനാട് ജില്ലാ പ്രസിഡന്റും എസ്എൻഡിപി യൂണിയൻ നേതാവുമായ എൻ

ഷാജി രാജിവെച്ചു ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ബിഡിജെഎസിനെ ബിജെപി സഹായിച്ചില്ലെന്ന ആരോപണം ഉയർത്തിയതിനെ തുടർന്ന് പാർട്ടിയും എസ്എൻഡി പിയും ഷാജിയെ വിമർശിച്ചിരുന്നു